ടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും ഫോനി ചുഴലിക്കാറ്റ് ആറു മണിക്കൂറിനകം തീവ്രമാകും കേരളത്തിൽ ഇന്നും നാളെയും കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യത നാലു ജില്ലകളിൽ യെല്ലോ അലർട്ട് ശ്രീലങ്കൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാലക്കാട് നടത്തിയ റെയ്ഡിൽ എൻ ഐ എ ഒരാളെ കസ്റ്റഡിയിലെടുത്തു ഉപലോകായുക്തയായി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ചേർത്തലയിൽ ഒന്നരു വയസ്സായ പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ അറസ്റ്റ് ചെയ്തു ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി പ്ലേ ഓഫിൽ

ജമ്മു കശ്മീ രിലെ അനന്തനാഗ് ലോക്സഭാ മണ്ഡലത്തിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്നു വോട്ടെടുപ്പ് നടക്കും സുരക്ഷാകാരണങ്ങളാൽ അനന്തനാഗ് ലോക്സഭാ മണ്ഡലത്തിൽ മൂന്നു ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നത് മഹാ രാഷ്ട്രയിലെയും ഒഡീഷയിലെയും വോട്ടെടുപ്പ് ഇന്നത്തോടെ പൂർത്തിയാകും രാജ സ്ഥാനിലും മധ്യപ്രദേശിലും ആദ്യഘട്ട വോട്ടെടുപ്പാണ് നടക്കുന്നത് കനത്ത സുര ക്ഷയിലാണ് വോട്ടെടുപ്പ്

കേന്ദ്രമന്ത്രിമാരായ ഗിരിരാ ജ്സിംഗ് സുഭാഷ് ബാംറെ കോൺഗ്രസ് നേതാക്കളായ സൽമാൻ ഖുർഷിദ് ആദിർ രഞ്ജൻ ചൌധരി സി പി ഐയുടെ കനയ്യകുമാർ തുടങ്ങിയ നേതാക്കൾ ഇന്ന് ജന വിധി തേടുന്നവരിൽപെടുന്നു

തമിഴ്നാട്ടിലെ വെല്ലൂരിൽ വോട്ടിന് പണം നൽകിയെന്ന ആരോപണത്തെ തുടർന്ന് വോട്ടെടുപ്പ് റദ്ദാക്കിയിരിക്കുകയാണ് ശേഷിക്കുന്ന മൂന്നുഘട്ടങ്ങളിലെ വോട്ടെടുപ്പിന് പ്രചാരണം ഊർജ്ജി തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാ ന്ധിയും ഉൾപ്പെടെ നേതാക്കൾ റാലികളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്

് മ ് മ ് കണ്ണൂരിലും കാസർക്കോട്ടും വ്യാപകമായി നടന്ന കള്ളവോട്ടിന്റെയും ആൾമാറാട്ടങ്ങളുടെയും ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജ യനും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിക്കുന്നില്ലെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു പതിറ്റാണ്ടുകളായി മലബാറിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കു നേതൃത്വം നൽകുന്നത് പിണറായിയും കോടിയേരിയും ഉൾപ്പെട്ട സി പി ഐ എം നേതാക്കളാണെന്ന് അദ്ദേഹം കല്പറ്റയിൽ കുറ്റപ്പെടുത്തി കള്ളവോട്ടിന്റെയും അട്ടിമറിയുടെയും സഹാ യമില്ലാതെ മലബാറിൽ ഒരു നിയോജകമണ്ഡലത്തിൽപോലും വിജയിക്കാൻ ശേഷി യില്ലാത്ത ദുർബല രാഷ്ട്രീയപ്രസ്ഥാനമാണ് സി പി ഐ എമ്മെന്ന് അദ്ദേഹം കുറ്റ പ്പെടുത്തി വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്നുലക്ഷം കവിയു മെന്ന് തെരഞ്ഞെടുപ്പ് സമിതി അവലോകനയോഗം വിലയിരുത്തിയതായി സമിതി ചെയർമാൻ കൂടിയായ മുല്ലപ്പള്ളി പറഞ്ഞു

ലോക്സഭാ മണ്ഡലങ്ങളിൽ കള്ളവോട്ട് ചെയ് തെന്ന കാര്യം തെളിയിക്കപ്പെട്ടാൽ അത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ ബാധിക്കുന്ന അർബുദമായി മാറുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി കോഴി ക്കോട്ട് പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് കോഴിക്കോട്ട് യോഗം ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താനാണ് പ്രധാനമായും യോഗം ചേരുന്നത് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഫോനി ചുഴലിക്കാറ്റ് അടുത്ത ആറു മണിക്കൂറിനകം തീവ്രമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ന്യൂഡൽഹിയിൽ അറിയിച്ചു

ഇതേ തുടർന്ന് കേരളത്തിൽ ഇന്നും നാളെയും കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി

ഈ കാലയളവിൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്ക ടലിലും അതിനോട് ചേർന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശത്തും തെക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിലും കേരള തീരത്തും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പു നൽകി ആഴക്കട ലിൽ മത്സ്യബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്നവർ തീരത്ത് തിരിച്ചെത്തണമെന്നും ആവ ശ്യപ്പെട്ടിട്ടുണ്ട് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ എറണാ കുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടായിരി ക്കും

കടൽ പ്രക്ഷു ബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പുനൽകി കോട്ടയം ജില്ലയിൽ കനത്ത മഴയ്ക്ക് സാധൃതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് കലക്ട്രേറ്റിൽ കൺട്രോൾ റൂം തുറന്നതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മലയോര മേഖലയി ലൂടെ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്

എ പാലക്കാട് നടത്തിയ റെയ്ഡിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു കൊല്ലങ്കോട് ചുള്ളിയാർമേട് റിയാസ് അബൂബക്കറിനെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇയാളെ ചോദ്യം ചെയ്യാനായി കൊച്ചിയിലെ എൻ

എ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി ് ് ് ് ് ് ഉപ ലോകായുക്തയായി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും

മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും നേരത്തെ നിശ്ചയിച്ചിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മുൻമന്ത്രി കെ

മാണിയുടെ നിര്യാണത്തെ തുടർന്ന് മാറ്റി വയ്ക്കുകയായിരുന്നു

ചേർത്തല പട്ടണക്കാട് ഒന്നര വയസ്സായ പെൺകുഞ്ഞിനെ കൊലപ്പെ ടുത്തിയ കേസിൽ അമ്മ അറസ്റ്റിലായി പട്ടണക്കാട് സ്വദേശിനി ആതിരയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ശനിയാഴ്ച കട്ടിലിൽ ചലന്മറ്റ രീതിയിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത് ചേർത്തല ആശുപത്രിയിലെത്തിച്ചപ്പോൾ സംശയം തോന്നിയ ഡോക്ടർ പൊലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോസ്റ്റുമോർട്ടത്തിൽ ശാസം മുട്ടിയതാണ് മരണകാരണമെന്ന് കണ്ടെത്തി

തുടർച്ചയായി ആറു മത്സരങ്ങൾ തോറ്റശേഷമാണ് കൊൽക്കത്ത ജയിക്കുന്ന ത് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരബാദ് കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ നേരി ടും

വൈസ് ചാൻസലർ ഡോക്ടർ എം

നായർ ബിരുദദാനം നിർവ്വഹിക്കും കൊല്ലം പെരുമ്പുഴ വഞ്ചിമുക്കിനു സമീപം കൂട്ടുകാർക്കൊപ്പം കുളത്തിൽ നീന്താനിറങ്ങിയ യുവാവ് ചെളിയിൽ പുതഞ്ഞ് മരിച്ചു

ഇന്നലെ വൈകിട്ട് ഒ മണിയോടെയായിരുന്നു അപകടം ഇടുക്കി രാജാക്കാട് പനച്ചിക്കുഴിയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു

കൂടെയുണ്ടായിരുന്ന യുവാവിന് ഗുരുതരമായി പരുക്കേറ്റു

അന്തർസംസ്ഥാന ബസ്സുകളും അവയുടെ ഓഫീസുകളും പരി ശോധിക്കുന്നതിന് ജില്ലയിൽ അഞ്ച് സ്കാഡുകളെ വിന്യസിച്ചതായും വകുപ്പ് അറി യിച്ചു

പതിനായിരം രൂപ പിഴ ഈടാക്കി കഴിഞ്ഞ ദിവസം സിഗ്നൽ തെറ്റിച്ചെത്തിയ കണ്ടയ്നർ ലോറിയിടിച്ചു അധ്യാപിക മരിച്ച പശ്ചാത്തലത്തിലാണ് നടപടി രണ്ടു വർഷത്തിനകം ഇരുപതിലധികം അപകട ങ്ങളാണ് ഇവിടെ നടന്നത് മാലിന്യ പരിപാലനത്തിനും നിർമ്മാർജ്ജനത്തിനും സ്കൂൾ കൂട്ടികളെ പങ്കാളികളാക്കുന്നതിനായി ഹരിത കേരളം മിഷനും കുടുംബശ്രീ മിഷനും കിലയും ചേർന്ന് നടപ്പാക്കുന്ന പെൻസിൽ പരിശീലന പദ്ധതിയുടെ ഇടുക്കി ജില്ലാ ക്യാമ്പ് ഇന്നും നാളെയുമായി വാഴവര ആശ്രമം ട്രെയിനിംഗ് കോളേജിൽ നടക്കും കുട്ടി കളിലൂടെ മാലിന്യ പരിപാലനം ഫലപ്രദമാക്കുന്നതിനാണ് തദ്ദേശസ്ഥയംഭരണ ട സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ എല്ലാ വാർഡുകളിലും സംഘടിപ്പിക്കുന്ന പെൻസിൽ പരിശീലന പരിപാടി ലക്ഷ്യമിടുന്നത്

മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം പറഞ്ഞു

നത്തിലൂടെ പൊളിക്കാൻ നടത്തിയ നീക്കം ഉപേക്ഷിച്ചതായി റെയിൽവെ അധികൃ തർ അറിയിച്ചു സ്ഫോടനത്തിലൂടെ പാലം പൊളിക്കാൻ കഴിഞ്ഞ ദിവസം നട ത്തിയ ശ്രമം പരാജയപ്പെട്ടിരുന്നു വിദഗ്ദ്ധരുമായി കൂടിയാലോചിച്ച് പാലം പൊളി ക്കാൻ മറ്റ് മാർഗ്ഗങ്ങൾ തേടുമെന്നും റെയിൽവെ അധികൃതർ അറിയിച്ചു കണ്ണൂർ കൂത്തുപറമ്പിൽ യുവാവിനെ മുറിയിൽ അടച്ചിട്ട് പണം കവരു കയും സ്ത്രീയോടൊപ്പം നിർത്തി ഫോട്ടോയെടുത്ത് സമൂഹമാധ്യമങ്ങളിൽ പ്രച രിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ രണ്ടുപേരെ പൊലീസ് അറസ്റ്റ് ചെയ്തു തല ശ്ശേരി സ്വദേശികളായ ഷഹനാസ് റെനീഷ് എന്നിവരാണ് അറസ്റ്റിലായത് യുവാ വിന്റെ ബൈക്കും സ്വർണ്ണമോതിരവും ഇവർ കൈക്കലാക്കിയിരുന്നു

യുവാവ് പിടിയിലായി കാസർകോട് നെല്ലിക്കുന്നിലെ മുഹമ്മദ് സമീറാണ് പിടി യിലായത്